പ്രതിരോധ ഉത്പാദനമേഖലയിൽ രാജൃത്ത് അനന്ത സാധൃതകളും അനുകൂലമായ നയങ്ങളുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

അയോദ്ധ്യ ക്ഷേത്രി പ്രസ്റ്റിന് രൂപം നല്കിയതായി പ്രധാനമന്ത്രി ക്ഷേത്രനിർമ്മാണത്തിനായി രാമജന്മഭൂമി തീർത്ഥ് ട്രസ്റ്റ് രൂപീക്രിച്ച് ഗവണ്മെന്റ് വിജ്ഞാപനം

ഹാമിൽടണിൽ ഇന്ത്യയ്ക്കെതിരായ ഒന്നാം ഏകദിനത്തിൽ ന്യൂസ്ലന്റിന് നാല് വിക്കറ്റ് വിജയം

പ്രതിരോധ ഉൽപാദന രംഗത്തിന്റേയും ഉല്പാദന സാങ്കേതികതയുടെ വികസനത്തിനും മികച്ച നേട്ടങ്ങൾ ലഭിക്കുന്നതിന് പ്രധാന വ്യവസായ സ്ഥാപനങ്ങൾ പൊതുവേദി പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു

മോദി പറഞ്ഞു രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായി പ്രതിരോധ സഹമന്ത്രി ശ്രീപദ് യശോ നായിക് ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ ്ട്ര മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവർ ഉദ്ഘൂട്ട്ന്ത്തിൽ പങ്കെടുത്തു ഇന്ത്യൻ പ്രതിരോധ സ്പ്രേന്യ്ക്കും പാര മിലിട്ടറി കേന്ദ്ര സായുധ പോലൂീസ് സേനയ്ക്കും വേണ്ടിയുള്ള ആയുധങ്ങൾ വിൽക്കുന്നതിനും ഉല്പാദനത്തിനുമായി ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ഇസ്രായേൽ എയ്റോ സ്പേസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആന്റ് ഡൈനാമിക് ടെക്നോളജീസ് ലിമിറ്റഡ് എന്നിവരുമായി ഡിഫൻസ് എക്സോപോയിൽ ധാരണപത്രവും ഒപ്പിട്ടു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്

സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം സുന്നി വഖഫ് ബോർഡിന് അഞ്ചേക്കർ നൽകാമെന്ന് ഉത്തർപ്രദേശ് ഗവൺമെന്റ് അറിയിച്ചിട്ടു ണ്ടന്നും അദ്ദേഹം പറഞ്ഞു രാമജന്മഭൂമി ട്രസ്റ്റിന് ക്ഷേത്ര നിർമ്മാണം സംബന്ധിച്ച് സ്വതന്ത്ര തീരുമാനമെടുക്കാവുന്നതാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി

അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിനായി എടുത്ത തീരുമാനത്തിന് ഡൽഹി തെരഞ്ഞെടുപ്പുമായി യാതൊരു ബന്ധവുമില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു

ചൈനയിൽ പ്പെട്നം നടത്തുന്ന കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളിലാണ് കൊറോണ വൈറസ് ബാന സ്ഥിരീകരിച്ചിട്ടുള്ളത്

രോഗബാധിതർ എന്നു സംശയിക്കുന്നവരുടെ എണ്ണം തുടർച്ചയായ രണ്ടാം ദിവസവും കുറഞ്ഞതായി ചൈനീസ് വിദേശകാരൃമന്ത്രാലയം വൃക്തമാക്കി വൈറസ് ബാധ നേരിടുന്ന ചൈനയോട് ലോക രാഷ്ട്രങ്ങൾ ഐക്യദാർഷ്ട്യം പ്രഖ്യാപിക്കണമെന്ന് ലോകാരോഗ്യസംഘടനയുടെ ഡയറക്ടർ ജനറൽ ആഹ്വാനം ചെയ്തു വുഹാനിൽ കൊറോണ ബാധിതരെ ചികിത്സിക്കാൻ മാത്രം യുദ്ധകാലാടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ആശുപത്രിയിൽ രോഗികളെ പ്രവേശിപ്പിച്ചു തുടങ്ങി

ആശുപത്രി ജീവനക്കാർക്കും രോഗികൾക്കും പ്രത്യേകം വാതിലുകൾ ആശുപത്രിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്

ഇതോടെ വുഹാനിലെ മറ്റ് ആശുപത്രികളിൽ കൊറോണ ബാധിതരുടെ ബാഹുല്യം കുറയ്ക്കായിക്കും

കപ്പൽ നിലവിൽ അണുവിമുക്തമാക്കാൻ യോക്കാ ഹാമ തീരത്ത് നങ്കൂരമിട്ടിരിക്കുകയാണ് ന്യൂസ്ഡസ്ക്ആകാശവാണി

ഡി

മുൻമുഖ്യമന്ത്രി മെഹ്ബൂബ മുഫ്ത്തിയുടെ അടുത്ത സഹായിയുമായിരുന്ന വാഹിദ്പര കരുതൽ തടങ്കലിൽ ആയിരുന്നു ദക്ഷിണ കാശ്മീരിലെ വാച്ചിമിൽ നിന്നുള്ള പി ഡി

യുടെ മുൻ എം

ഐജാസ് അഹമ്മദ് കാശ്മിരിലെ ഫെഡറേഷൻ ചേമ്പർ ഓഫ് ഇൻഡസ്ട്രീസിന്റെ മുൻ പ്രസിഡന്റ് ഷക്കീൽ അഹമ്മദ് ൂക്വാലണ്ടർ എന്നിവരെ ഇന്നലെ വിട്ടയച്ചിരുന്നു

ശ്രീനഗറിന്റെ പ്രാന്തപ്രദേശമായ പരിമ്പോറയിൽ നിന്ന് മറ്റൊരു ഭീകരനെ സുരക്ഷാസേന പിടികൂടി ഏറ്റുമുട്ടലിനിടെ ഒരു സി

എഫ് ജവാൻ വീരമൃത്യു വരിച്ചു

മൂന്ന് സുരക്ഷാ ഭടൻമാർ വീരമൃത്യു വരിച്ചതായും വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു

കേസിൽ നാല് പ്രതികളുടെയും വധശിക്ഷ വെവ്വേറെ നടപ്പാക്കണെന്നാവശ്യപ്പെട്ടാണ് കേന്ദ്രആഭ്യന്തരമന്ത്രാലയം നേരത്തെ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ ജയിൽച്ചട്ടം ചൂണ്ടികാട്ടി എല്ലാ പ്രതികൾക്കുമുള്ള ശിക്ഷ ഒരുമിച്ച് നടപ്പിലാക്കിയാൽ മതിയെന്ന് കോടതി നിർദ്ദേശിച്ചു

സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനത്തിൽ കൂടുതൽ ഉത്തരവാദിത്തവും സുതാര്യതയും ഉറപ്പാക്കാൻ നീക്കം സഹായിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിനു ശേഷം കേന്ദ്ര മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ മാധൃമങ്ങളെ അറിയിച്ചു ഷെഡ്യൂൾഡ് വാണിജൃബാങ്കുകൾക്കായി നിശ്ചയിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ സഹകരണ ബാങ്കുകളും പാലിക്കണമെന്ന് ജാവ്ദേക്കർ പറഞ്ഞു

ഐ

സൂറത്ത് ഭോപ്പാൽ ഭഗൽപ്പൂർ അഗർത്തല റായ്പൂർ എന്നിവിടങ്ങളിലെ ഐഐടികളെ ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളാക്കുന്നത് ബിൽ വിഭാവനം ചെയ്യുന്നു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നന്ദി പ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടി നൽകും തുടർന്ന് ഭേദഗതികളോടെ പ്രമേയം വോട്ടിനിടും

ശശിതരൂരിന്റെയും പ്രതിഷ്ട്ട്ടൾക്കൊടുവിലാണ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത്